ആഗോളതലത്തിൽ ഏറ്റവും ക്ടൂറ്റ്ഞ്ഞ് കോവിഡ് മരണനിരക്ക് ഇന്തൃയിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ

ലോക്ഡൌൺ നാലാർഘട്ട് ഇളവുകളുടെ ഭാഗമായുള്ള അൺലോക്ക് നാല് പൂ മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി

കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെ മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ കരുതലോടെ ഓണത്തെ വരവേൽക്കണമെന്ന് മുഖ്യമന്ത്രി

ഈ ഇളവുക്ൾ മിറ്റെന്നാൾ മുതൽ നിലവിൽ വരും കൂടുതൽ വിവരങ്ങളുമായി ദേവി പ്രിയ

കണ്ടെയിൻമെന്റ് മേഖലകളിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും

അധ്യാപകരുമായി ആശയവിനിമയം നടത്താൻ ക്ലാസുകളിലെ കണ്ടെയിന്റ്മെന്റ് മേഖലയ്ക്ക് പുറത്തുള്ള കുട്ടികൾക്ക് സ്കൂളില്ലെത്താം

സംസ്ഥാനങ്ങൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾ തുടങ്ങിയവയുമായി ആലോചിച്ചാണ് ആഭ്യന്ത്രമന്ത്രാലയം മാർഗ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉന്നത ഉദ്യേഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് നിയന്ത്രണ പരിപാടിയിൽ സഹകരിക്കുന്ന ഒത്തൊരുമിച്ച് മറ്റുള്ളവരും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാർ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പരിശോധന സൌകരൃങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും രോഗ വ്യാപനം നേരത്തേ കണ്ടെത്താൻ ശ്രദ്ധിക്കണമെന്നും ഫലപ്രദമായ നിയന്ത്രണ പരിപാടികൾ കൊണ്ടുവരണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

പരീക്ഷാർത്ഥികൾക്കും പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും യാത്രാ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനം എന്നാൽ കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ കർശനമായി പാലിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

ഇന്തൃയ്ക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന വെബ് സൈറ്റുകൾ വഴിയാണ് കമ്പനികൾ ധനമുണ്ടാക്കിയത്

ഹൈദ്രാബാദ് പൊല്ലീസ്ടിന്റെ സൈബർ ക്രൈം സ്റ്റേഷൻ എടുത്ത എഫ് ഐ ് ആർ പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറ്റേറ്റീട്ടുന്റെ അന്വേഷണം

കൂടുതൽ വിവരങ്ങളുമായി ദേവി പ്രിയ

പാർലമെന്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളും ഏകീകൃതമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കണമെന്ന് ശ്രീ

രാജ്യത്തുടനീളം വിവിധ ഉത്സവങ്ങളും ആഘോഷങ്ങളും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു

ഇതിൽ ആറ് എണ്ണം മൂന്നാം ഘട്ടത്തിലാണ് ഭാരത് ബയോടെക് സൈഡസ് ക്യാഡില്ല എന്നിവയുടെ വാക്സിൻ വികസനം രണ്ടാം ഘട്ടത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഓക്സ്ഫർഡ് വാക്സിൻ മഹാരാഷ്ട്രയിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും മൂന്നാം ഘട്ടത്തിലാണ്

ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൃത്യമായ കരുതലോടെ വേണം ഓണത്തെ വരവേൽക്കാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോവിഡ് സൃഷ്ടിച്ച എല്ലാ പരിമിതികളും പ്രയാസങ്ങളും പ്രമ്റികടന്ന് ഓണത്തിനു സാധ്യമായ സഹായങ്ങൾ എത്തിക്ക്ടാൻ സർക്കാർ ഒപ്പമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ആൻഡമാനിലെ അധികൃതരുമായി കേന്ദ്ര സർക്കാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ചില ഗോത്രവർഗക്കാർക്ക് കോവിഡ് രോഗബാധ ഉണ്ടായ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്

വായ്പയെടുത്തവർക്ക് താൽക്കാലിക ആശ്വാസമായി ആറ് മാസത്തെ മൊറട്ടോറിയം കാലാവധിയാണ് രണ്ട് തവണയായി റിസർവ്വ് ബാങ്ക് അനുവദിച്ചത്

മരണസംഖ്യ എട്ടര ലക്ഷത്തോടടുക്കുന്നു